പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ അന്തർദ്ദേശീയ വിഷയങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു

ഡൽഹിയിലെ സർദാർ പട്ടേൽ ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും അമിത്ഷായും ആശുപത്രി സന്ദർശിച്ചു

ദ്ദേശീയ അന്തർദേശീയ കാര്യങ്ങൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചതാ്യി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

ടി

മേധാവി എസ്

രാജ്യത്തെ എല്ലാ വിഭാഗം സേനാംഗങ്ങളുടെയും ആത്മവീര്യം ഉയർന്നതായി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

അതിർത്തിയുടെ സുരക്ഷയ്ക്കായി സൈനൃവും അർധ സൈനിക വിഭാഗവും കരുതലോടെയാണ് നിലകൊള്ളുന്നതെന്ന് എ

സി എം ആർ അനുമതിയോടെ കോവിഡ് പരിശോധന നടത്തുന്നത്

ഭാരത് ബയോടെക്കിന്റെ ക്രോവാസ്കിൻ സൈഡസ് കാഡിലയുടെ സൈക്കോവ് ഡി പ്പാക്സിൻ എന്നിവ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാ്രൃക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു മനുഷ്യ ശരീരത്തിൽ പരീക്ഷിക്കുന്നതിന് ഈ മരുന്നുകൾക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ സിറാജ് വോയിസ് ഇന്തോ ടിബറ്റൻ ബോർഡർ പൊലീസാണ് കോവിഡ് സെന്ററിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്

ഗുരുതരമായി രോഗം ബാധിച്ചവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും ശുചീകരണ മാലിന്യ നിർമാർജ്ജന സംവിധാനം ഉറപ്പാക്കണമെന്നും ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു

കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ക്ട്ർഷ്വർധൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഡ്ടി

ഡി ഒ ചെയർമാൻ ജി

ഡി ഒ കോവിഡ് ആശുപത്രി സ്ഥാപിച്ചത്

സ്കിയു കിടക്കകൾ ആശുപത്രിയിലുണ്ടെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

എലിമെന്റ് മൊബൈൽ ആപ്പ് വീഡിയോ കോൺഫറൻസിംഗി ലൂടെ പുറത്തിറക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി രാജ്യത്തിന്റെ സമ്പദ്വൃവസ്ഥയ്ക്കു വലിയ ഉത്തേജനം നൽകുകയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ ലക്ഷ്യമിടുന്നത്

പരീക്ഷണങ്ങൾക്കും പരൃവേക്ഷണ ങ്ങൾക്കും തൽപരരായ യുവജനങ്ങളെയാണ് രാജ്യത്ത് വേണ്ട തെന്നും ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു

വിദ്യാഭ്യാസ സമ്മൂഹ്ലും വ്യവസായ മേഖലയും തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്ത്യ്ക്ക്മെന്ന് യോഗം നിർദ്ദേശിച്ചു

ഐ

റോഡ് മാർഗ്ഗമുള്ള യാത്രയ്ക്കാണിത് കോവിഡ് പരിശോധനയ്ക്കുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗ്ഗരേഖ ബാധകമായിരിക്കും സുപ്രീം കോടതി നിയോഗിച്ച ഉപസമിതി യോഗത്തിനുശേഷം ജമ്മുകാശ്മീർ ചീഫ് സെക്രട്ടറി ബി

ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദേശം

രാജസ്ഥാൻ മധ്യപ്രദേശ് ചത്തീസ്ഗഡ് പഞ്ചാബ് ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന ബിഹാർ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ